കേന്ദ്ര സർക്കാർ തുടരുകയാണ്ണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ

സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു

പകർച്ചവ്യാധിയുടെ രണ്ടാം തരംഗത്തെ കാര്യക്ഷമമായി നേരിടുന്നതിൽ കേന്ദ്രത്തിന്റെ വീഴ്ച സംബന്ധിച്ച ആരോപണങ്ങൾ നിഷേധിച്ച കേന്ദ്രമന്ത്രി കോവിഡിനെ പിടിച്ചുകെട്ടാനുള്ള എല്ലാ തയാറെടുപ്പുകളും കേന്ദ്രം തുടരുകയാണെന്നും വൃക്തമാക്കി കോവിഡ് കേസുകളുടെ വർദ്ധനവ് നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് ആരോഗൃ മന്ത്രാലയം ജനുവരിയിൽ തന്നെ ആരോഗ്യ വിദഗ്ദ്ധരുടെ മെഡിക്കൽ സംഘങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാരൃം വൃക്തമാക്കിയത്

വാക്സിനുകളുടെ വില ഇൌടക്കുന്നത് സുബിന്ധിച്ചും ആഭ്യന്തര അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ പ്പിലയിരുത്തിയുമുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ലോക്ഡൌൺ നിലവിൽ വന്നു

രോഗവ്യാപനം വർധിക്കുന്ന കർണാടകയിൽ ഷെഡ്യൂൾ ചെയ്ത വിമാന ട്രെയിൻ സർവീസുകൾ ഒഴികെ പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല

ഇവിടെയും അവശ്യ സർവീസുകൾ മാത്രമേ പ്രവർത്തിക്കൂ

പ്രാജസ്ഥാനിൽ രണ്ടാഴ്ച നീണ്ടുനിൽക്കുന്ന ലോക്ക്ഡൌൺ ഇന്ന് പുലർച്ചെ മുതൽ നിലവിൽ വന്നു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

പ്രമേഹ രോഗം ഉള്ളവരെയും ദീർഘകാലം തീവ്രപരിചരണവിഭാഗത്തിൽ കഴിയുകയും ചെയ്യുന്ന കോവിഡ് രോഗികളിൽ ഈ അണുബാധ കണ്ടുവരുന്നു

ഖത്തറിലെ ഹമദ് തുറമുഖത്ത് നിന്നും ഫ്രഞ്ച് ദൌത്യമായ ഓക്സിജൻ സോളിഡാരിറ്റി ബ്രിഡ്ജി ന്റെ ഭാഗമായാണ് ദ്രവീകൃത ഓക്സിജൻ കണ്ടെയ്നറുകൾ രാജ്യത്ത് എത്തിച്ചത്

ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ

കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ രോഗവ്യാപനം ഉയർന്ന തോതിലാണ് ഈ ജില്ലകളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു

കേന്ദ്രം മൂന്ന് ഓക്സിജൻ പ്ലാന്റുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്

കാരണം ബോധ്യപ്പെടുത്തിയാൽ മാത്രമ്യെ യാത്ര പാസ് നൽകൂ

ആർക്കും ഭക്ഷണം കിട്ടാത്ത അവസ്ഥാ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഏതെങ്കിലും കാരണവശാൽ അധിക നിരക്ക് ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ ഡിഎംഒ അടക്കമുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകാം

സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിയ കോവിഷീൽഡ് വാക്സിന്റെ മൂന്നര ലക്ഷം ഡോസാണ് എത്തിച്ചത്

ഇന്നെത്തിയ വാക്സിന് പുറമെ കൂടുതൽ വാക്സിൻ ഉടൻ എത്തും

ഒ വഴി അധികം ഓക്സിജൻ ഉത്പാദിപ്പിക്കാനും ഇതിലൂടെ തമിഴ്നാടിനെയും പുതുച്ചേരിയെയും കോവിഡിനെതിരായി പൂർണ സജ്ജമാക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി കേന്ദ്രത്തിന് നിർദേശം നൽകി ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമത വർധിപ്പിക്കുന്നതിലൂടെ കോവിഡ് മൂന്നാം തരംഗത്തിൽ ഉണ്ടാക്കാൻ സാധൃതയുള്ള പ്രശ്നങ്ങളെയും നാശനഷ്ടങ്ങളെയും തടയാനാകുമെന്നു മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി

ഈ സാഹചര്യത്തിൽ താൻ ഒളിമ്പിക്സിന് ഒരിക്കലും അമിത പ്രാധാന്യം നൽകിയിട്ടില്ല എന്ന് ജപ്പാൻ പ്രധാനമന്ത്രി അറിയിച്ചു ലോകരാഷ്ട്രങ്ങളിൽ വാക്സിനേഷൻ നൽകുന്നതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഉള്ള രാജ്യമാണ് ജപ്പാൻ

പെട്രോൾ ഡീസൽ വിലയിൽ വർധന

സ്വർണ വിലയിൽ മാറ്റമില്ല